ജൻ ഔഷധി മരുന്നുകൾ ജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

പിന്നിട്ടൂ

ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം

രാംനാഥ് കോവിന്ദ്

ജൻ ഔഷധി ദിവസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ജൻ ഔഷധി സാനിറ്ററി പാഡിന് ഒരു രൂപ്ട്യേ വിലയുള്ളൂ ആയിരത്തിലധികം ജൻ ഔഷധി കേന്ദ്രങ്ങൾ ്വനിതകളാണ് നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറ്റണ്ടു

ന്യൂഡൽഹി അശോക് വിഹാറിൽ ജൻ ഔഷധി കേന്ദ്രം ഉദ്ഘാടനം ചെയ്യവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്

കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഗവർണർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് അദ്ധ്യക്ഷ സോണിയാഗാന്ധി എന്നിവർ സമിതി അംഗങ്ങളാണ് മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ മുൻ പ്രധാനമന്ത്രിമാരായ എച്ച് ഡി ദേവഗൌഡ ഡോ മൻമോഹൻ സിങ്ങ് നോബേൽ സമ്മാന ജേതാക്കളായ അമൃത്യാ സെൻ കൈലാഷ് സത്യാർത്ഥി എന്നിവരും സമിതിയിലുണ്ട്

അപ്പോഴേക്കും രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ശതാബ്ദിയിലെത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഐതാനത്ത റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

ത്രിപുരയിലെ നിരവധി അ്ടിസ്ഥാന വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങും പ്രധാനമന്ത്രി വിദൂര ദൃശൃസംവിധാനത്തിലൂടെ നിർവ്വഹിക്കും

ത്രിപുരയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഒഴുകുന്ന ഫെനി നദിയ്ക്ക് കുറുകെയാണ് മൈത്രി സേതു എന്ന പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി സൌഹൃദ ബന്ധത്തെയാണ് മൈത്രി എന്ന പേരിലൂടെ ഉയർത്തിക്കാട്ടുന്നത്

പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ബംഗ്ലാദേശിലെ ചിറ്റഗോംഗ് തുറമുഖത്തിലേക്കെത്താനുള്ള വടക്ക് കിഴക്കിന്റെ പ്രവേശന കവാടമായി ത്രിപുര മാറും

ഇരുരാജൃങ്ങളിലെയും ചരക്ക് യാത്രാ ഗതാഗതം സുഗമമാക്കാനും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി തുറക്കാനുള്ള അവസരവും ഒരുക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് ്സിൻഹ ഡോ കരൺ സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ഇത് ആദ്യമായാണ് ഭഗവത്ഗീതയ്ക്ക് ഒരേസമയം ഇത്രയും വൃാ്ച്ച്യാനങ്ങൾ വരുന്നത്

കരൺസിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ധർമാർത്ഥ് ട്രസ്റ്റാണ് സമഗ്രമായ വ്യാഖ്യാനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്

കോവിഡ് സാഹചര്യം നിലനിൽക്കുന്നതിനാൽ രാജ്യസഭ രാവിലെ ഒൻപത് മണിമുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയും ലോക്സഭ വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് വരെയുമാകും സമ്മേളിക്കുക

ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായും മറ്റു ദിവസങ്ങളിൽ ഭാഗികമായുമാണ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത്

വനിതകൾ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളും അവരുടെ സംഭാവനകളും അനുസ്മരിക്കുന്നതോടൊപ്പം ലിംഗസമത്വത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതിനും കൂടിയാണ് ദിനാചരണം തെരഞ്ഞെടുക്കൂ വെല്ലുവിളിയുടെ പാത എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ പ്രമേയം വികസിതരാജ്യങ്ങളിൽ താരതമ്യേന കൂടുതൽ വനിതാ പൈലറ്റുകളുള്ള രാജ്യമാണ് ഇന്ത്യ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ പറന്നുയരാൻ ഒന്നും ഒരു തടസ്സമാവില്ലെന്ന് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ജെറ്റ് വിമാനം പറത്തി ചരിത്രം കുറിച്ച എയർ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ നിവേദിത ഭാസിൻ ആകാശവാണി വാർത്തകളോട്

സ്ത്രീ സ്ത്രക്ഷ ആദരം ശാക്തീകരണം എന്നിവയ്ക്കായി അന്താരാഷ്ട്രട വനിതാ ദിനം സമർപ്പിക്കണമെന്നും വനിതകളുടെ പുരോഗതീക്ക് തടസ്സമാകുന്ന നയങ്ങൾ മാറ്റുന്നതിൽ അവരെ പിന്തുണയ്ക്കണമെന്നും രാഷ്ട്രപതി അഭ്യർത്ഥിച്ചു

ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീ

ജെ പി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച വിജയ യാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ശംഖുമുഖത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു സാമൂഹൃ പരിഷ്കരണത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഭൂമിയായിരുന്ന കേരളം ഇന്ന് കലാപങ്ങളുടെ നാടാണ് സ്വയം പര്യാപ്ത കേരളത്തിനുള്ള തുടക്കമാകണം ഈ തെരഞ്ഞെടുപ്പെന്നും അമിത് ഷാ ആഹ്വാനം ചെയ്തു

എസ് ശക്തികേന്ദ്രമായ മ്യൊസൂളിലെ തകർന്ന പള്ളിയിൽ പ്രാർത്ഥന നടത്തിയ മാർപ്പാപ്പ് പ്രിന്നീട് ഇർബിലിൽ സമൂഹബലിയിലും പങ്കുക്കൊണ്ടു

ഡസ്സോൾട്ട് രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗം നഷ്ടമാണെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോൺ ടിറ്ററിൽ കുറിച്ചു